ടി

എസ് ആർ ടി സി ജീവനക്കാർക്കെതിരെ അപ്പ്ക്യ് സേവന സംരക്ഷണ നിയമം പ്രകാരം കേസെടുത്തതായി മന്ത്രി ്കടകംപള്ളി സുരേന്ദ്രൻ നിയമസഭയിൽ പ്രതിപക്ഷത്തിന്റെ അടിയന്തര പ്രമേയ നോട്ടീസിന് മറുപടി പറയുകയായിരുന്നു മന്ത്രി പ്രമേയത്തിന് സ്പീക്കർ അനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം സഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി വിഷയം സഭ നിർത്തിവച്ച് ചർച്ച ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് എം

് സംഭവത്തിൽ വിശദമായ റിപ്പോർട്ട് ജില്ലാ കളക്ടറോട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്ന് ഗതാഗതമന്ത്രിക്കു വേണ്ടി മറുപടി പറഞ്ഞ ശ്രീ

റിപ്പോർട്ട് ലഭിച്ചശേഷം കുറ്റക്കാർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുമെന്നും മന്ത്രി പറഞ്ഞു

ജോർജ് മോശമായി പൊരുമാറിയ്ത്

എൽ എ ീമ്യാർക്ക് മണ്ഡലത്തിൽ തുടർച്ചയായി നാല് ദിവസം ചെലവഴിക്ക്ട്ൻ സമയം കിട്ടുമെന്നത് കണക്കിലെടുത്താണ് നാളത്തെ ആറ്റുകാൽ പൊങ്കാല ആയതിനാൽ ് തീങ്കളാഴ്ച സഭയ്ക്ക് നേരത്തെ അവധി നൽകിയിരുന്നു